കൂടുതൽ തുക അനുവദിക്കുമെന്ന് ഗവർണർ പി സദാശിവത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകി

കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും

എ ഭരണത്തിൽ വന്നതിനുശേഷം ഇന്ത്യൻ സമ്പദ് വൃവസ്ഥ പരിഷ്കരണത്തിന്റെ പാതയിലാണെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി

ശ്രമമെന്നും ഇതിനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമാസത്തെ ശമ്പളം നാടിന് നൽകാൻ തയ്യാറാവണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഏഷ്യൻ ഗെയിംസിൽ സുവർണ്ണ നേട്ടം ലക്ഷ്യമിട്ട് ജാവ്ലിൻ ത്രോ താരം നീരജ് ചോപ്രയും ഇന്ത്യയുടെ അത്ലറ്റുകളും ഇന്ന് മത്സരത്തിന്

ഗവർണറുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന കൂടി ക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞതെന്ന് രാജ്ഭവൻ പുറ ത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു

ഇന്ന് ന്യൂഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരിഷ്കാരങ്ങൾ പ്പൂർച്ച ചെയ്യും

വോട്ടർപ്പ ട്ടിക തെരഞ്ഞെടുപ്പ് തുടങ്ങിയുക്ടാര്യങ്ങളുടെ വിശ്വാസ്യത സുതാര്യത എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യുള്ള് അടുത്ത് നടക്കാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ ്ത്ത്ത്ത്തെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് യോഗം

രണ്ട് ജില്ലകളിൽ വരൾച്ചയനുഭവപ്പെട്ടു തമിഴ്നാട്ടിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത്

ലക്ഷദ്വീപിലും പൊതുവേ മഴ കുറവാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എഫ്

യുവാക്കൾക്ക് കേന്ദ്ര സേനയി ലേക്കും അർദ്ധസേനയിലേക്കുമു്ള നീയമന നടപടികൾക്ക് ആവശ്യ മായി സഹായങ്ങൾ ചെയ്യുസ്ത്രിനായാണ് പ്രത്യേക കേന്ദ്രങ്ങൾ തുറന്നത്

യുവാക്കളെ മത്സരപരീക്ഷ കൾക്ക് സജ്ജമാക്കുന്നതിനും അപേക്ഷകൾ അയയ്ക്കാനും സ്കൂളുക ളിലും കോളേജുകളിലും തൊഴിൽ സംബന്ധമായ ബോധവൽക്കരണ ങ്ങളും നടത്തുന്നതിനാണ് കേന്ദ്രങ്ങൾ തുറന്നത്

അന്താരാഷ്ട്ര നാണയ നിധിയുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി ഫെയ്സ്ബുക്കിലാണ് ധനമന്ത്രിയുടെ പ്രതികര ണം

എഫിന്റെ കണക്കുകൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു

വിയറ്റ്നാം കംബോഡിയ എന്നീ രാജ്യങ്ങളിലേയ്ക്കുള്ള അഞ്ച് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗ്യമാട്ട്രി ശ്രീമതി

ബുധനാഴ്ച കംബോഡിയയിലേക്കു പോകുന്ന സുഷമ സ്വരാജ് കംബോഡിയൻ വിദേശകാരൃ മന്ത്രി പ്രാക് സോഖോനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും

സുഷമസ്വരാജിന്റെ ആദ്യ കംബോഡിയ സന്ദർശനമാണിത്

ഇതിനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമാസത്തെ ശമ്പളം നാടിന് നൽകാൻ തയ്യാറാവണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ഒരുമാസത്തെ ശമ്പളം ഘട്ടംഘട്ടമായി നൽകിയാൽ മതിയാകും ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികൾ ഒരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാമെന്നും നവകേരള നിർമ്മിതിയ്ക്ക് പണം ഒരു തടസ്സമാകില്ലെന്നും മുഖ്യമന്ത്രി ഫേയ്സ് ബുക്കിൽ കുറിച്ചു

വർക്കലയിലും മറ്റ് കേന്ദ്രങ്ങളിലും ജയന്തി സമ്മേളന ങ്ങളും ഘോഷയാത്രകളും ഒഴിവാക്കിയിട്ടുണ്ട്

വനിതാ ലോങ് ജെബ്ബിൽ ജയിംസ് നയനയും നീനാ വരകിലും പുരുഷ വിഭാഗം ഹൈജെബ്ബിൽ ചേതൻ ബാലസുബ്രഹ്മണ്യയും ഇന്ന് സ്വർണ്ണം ലക്ഷ്യമിടുന്നുണ്ട്

ഇതിനകം തന്നെ ഇരുവരും വെങ്കലും ഉറപ്പാക്കിയിട്ടുണ്ട് ബോക്സിംഗിൽ ഇന്ത്യൻ താരങ്ങൾ വികാസ്കൃഷ്ണൻ അമിത് പങ്കാൾ ഫ്രീ ക്വാർട്ടർ ഫൈനൽ കളിക്കും

വനിതാ പുരുഷ ടീമുകൾ ഇതിനകം തന്നെ സെമിയിൽ കടന്നിട്ടുണ്ട് സ്കാഷിലും ടേബിൾ ടെന്നീസിലും ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ പ്രാരംഭ റൌണ്ടിൽ ഇന്ന് ഇറങ്ങും ഭാരോദാഹനം വോളിബോൾ കരാട്ടെ എന്നീ ഇനങ്ങളിലും ഇന്ന് ഇന്ത്യൻ പങ്കാളിത്തമുണ്ട്

ന്യൂഡ് ഡെസ്ക് ആകാശവാണി

അതേസമയം എതിർവശത്തു നിന്നും വന്ന ട്രക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വെന്ന് പോലീസ് അറിയിച്ചു

നൻഗാർ ഗഡിൽ ഇന്നലെ ഭീകര കേന്ദ്ര ങ്ങൾക്കുനേരെ നടത്തിയ ആക്രമണത്തിലാണ് അബുസാദ് കൊല്ലപ്പെട്ട തെന്ന് അഫ്ഗാൻ ദേശീയ സുരക്ഷാ വിഭാഗം സ്ഥിരീകരിച്ചു രണ്ടു കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു അഫ്ഗാൻ ഇന്റലിജൻസ് മേധാവി രാജിവച്ചതായുള്ള വാർത്തകൾ പ്രസി ഡന്റ് അഷ്റഫ് ഘനി നിഷേധിച്ചു

ഫ്ളോറിഡയിൽ ഇന്നലെ രാത്രി ഒരു ഹോട്ടലിലാണ് യുവാവ് വെടിവയ്പ് നടത്തിയത്

അക്രമി കൊല്ല പ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു

എഫ് ഇന്ന് ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോ യിൽ തുടക്കമാകും ഏഷ്യൻ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടപടികളും ജനാ ധിപത്യവും ഫോറം ചർച്ച ചെയ്യും ശ്രീലങ്കൻ ഇലക്ഷൻ കമ്മീഷൻ ഏഷ്യൻ നെറ്റ്വർക്ക് ഫോർ ഫ്രീ ഇലക്ഷൻസ് എന്നിവയുടെ ആഭിമുഖ്യ ത്തിലാണ് രണ്ടു ദിവസത്തെ യോഗം